നിയന്ത്രണങ്ങൾ ശക്തമാക്കി

പശ്ചിമബംഗാളിൽ നാലാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി

ക്യാപിറ്റൽസ് പോരാട്ടം

വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് സ്ഥിതിവിവരങ്ങൾ അവലോകനം ചെയ്യാനായി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി നടത്തിയ യോഗത്തിലായിരുന്നു വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്

വാക്സിനേഷൻ സ്വീകരിച്ച ശേഷവും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

മഹാരാഷ്ട്രയിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച വരെ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പു മന്ത്രി പ്രകാശ് ജാവദേക്കറിന്റെ സാന്നിധ്യത്തിൽ കൂടിയ കൊറോണ വിലയിരുത്തൽ യോഗം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു

ആവശൃം വരുന്നതിനനുസരിച്ച് ഓക്സിജൻ ്യൂ ലഭ്യമാക്കാൻ അദ്ദേഹം അയൽസംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശ്ക് നിൽകി

അജ്മീർ കോട്ട ജയ്പൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലാണ് കർഫ്യൂ

ഏജൻസികൾ എന്നിവയ്ക്ക് ഇളവുണ്ട്

അവശ്യസർവീസുകളെ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

പദ്ധതിയ്ക്കാവശൃമായ വാക്സിൻ ഡോസുകൾ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ

അടുത്തയാഴ്ച അവധിക്കാലം ആരംഭിക്കുന്നതിനെ തുടർന്നാണ് പബുകൾ ബാറുകൾ ക്ലബുകൾ പാർക്കുകൾ എന്നിവ അടച്ചിടുന്നത്

നിരവധി കർഷക സംഘടനകളും സാമ്പത്തിക വിദഗ്ധരും കാർഷിക ബില്ലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്

കൂച്ച് ബിഹാർ ജില്ലയിൽ നടന്ന അക്രമസംഭവങ്ങളിൽ അഞ്ച് പേർ കൊല്ലപ്പെട്ടു

ഭരണ കക്ഷിയായ ത്രിണമൂൽ കോൺഗ്രസും ബി ജെ

ഇതിനിടെ അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം രാഷ്ട്രീയ കക്ഷികൾ ഊർജ്ജിതമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക ഹോമിയോപ്പതി ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുഷ് ചികിത്സാരീതികളെ പരിപോഷിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇന്ത്യയുടെ ദേശീയ ആരോഗ്യനയം രൂപപ്പെടുത്തിയിട്ടുളളതെന്നും അദ്ദേഹം പറഞ്ഞു

ത്രിപുര സിക്കിം സംസ്ഥാനങ്ങൾ ഇത് സംബ്രസ്ട്രിച്ച് വാർഷിക പ്രവർത്തന രൂപരേഖ സമർപ്പിച്ചിട്ടുണ്ടെന്നും ജലശ്രക്തി മന്ത്രാലയം അറിയിച്ചു

എല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം

ഡൽഹിയുടെ കൃാപ്റ്റനായതിനുശേഷം ഋഷഭ് പന്തിന്റെ ആദ്യ മത്സരമാണിത് കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ ചെന്നൈ ഇത്തവണ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്

കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയും പൊലീസിന്റെ പക്ഷപാത സമീപനത്തിനെതിരെയും കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം